നിർദേശം നൽകി

ചെറുകിട മേഖലയ്ക്ക് ആവശ്യമായ സാമ്പത്തിക ലഭ്യത ഉറപ്പാ ക്കാനും മാന്ദ്യം മറികടക്കാനും ലക്ഷ്യമിട്ടാണ് നടപടി

വായ്പാമേളകളിൽ കേന്ദ്ര മന്ത്രിമാരും എം പിമാരോ ഉണ്ടായിരിക്കണമെന്ന് ധനമന്ത്രി നിർദേശം നൽകി ഇതിന്റെ മേൽനോട്ടച്ചുമതല ധനസഹമന്ത്രി അനുരാഗ് ഠാക്കൂറിനാ യിരിക്കും സംസ്ഥാനത്തെ പ്രളയ നാശനഷ്ടം വിലയിരുത്താനെത്തിയ കേന്ദ്ര സംഘം ഇന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയ നുമായും മന്ത്രി ഇ ചന്ദ്രശേഖരനുമായും ചർച്ച നടത്തും ഇന്നലെ കണ്ണൂർഎറണാകുളം ജില്ലകളിലെ സന്ദർശുനം സംഘം പൂർത്തി യാക്കിയിരുന്നു മലപ്പുറം ആലപ്പുഴ വയനാട് തൃശൂർ ജില്ലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഘം സ്ഥിതി ഗതികൾ നേരിട്ട് വിലയി രുത്തി കേന്ദ്ര ആഭ്യന്തര ജോയിന്റ് സെക്രട്ടറി ശ്രീപ്രകാശിന്റെ നേതൃത്വ ത്തിൽ ഏഴംഗ സംഘമാണ് ചൊവ്വാഴ്ച സംസ്ഥാനത്ത് സന്ദർശനം ആരംഭിച്ചത് ജില്ലാ കലക്ടർമാരുമായും മുതിർന്ന ഉദ്യോഗസ്ഥരു മായും ഓരോ ജില്ലയിലെയും സാഹചര്യം വിലയിരുത്തിയ ശേഷ മായിരുന്നു സന്ദർശനം ഇന്ന് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം സംഘം വൈകാതെ കേന്ദ്രത്തിന് റിപ്പോർട്ട് കൈമാറും ഇതിന്റെ അടിസ്ഥാ നത്തിലായിരിക്കും മറ്റൊരു വിദഗ്ധ സമിതി സംസ്ഥാനത്തെത്തി നഷ്ടപരിഹാരം സംബന്ധിച്ച അന്തിമ റിപ്പോർട്ട് തയാറാക്കുക മുമ്പെങ്ങും ഉണ്ടാകാത്തവിധം രൂക്ഷമായ പ്രളയക്കെടുതിയാണ് ക ണ്ണൂർ ജില്ലയിൽ ഇത്തവണ ഉണ്ടായതെന്നും അതിനാൽ നഷ്ടപരി ഹാരം കണക്കാക്കുന്നതിൽ പ്രത്യേക പരിഗണന നൽകണമെന്നും ആവശ്യപ്പെട്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കേന്ദ്ര സംഘത്തിന് നി വേദനം നൽകി കൊച്ചി മരടിലെ ഫ്ളാറ്റുകൾ പൊളിക്കണമെന്ന സുപ്രീംകോടതി നിർദേശത്തിൽ സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളുടെ റിപ്പോർട്ട് ചീഫ് സെക്രട്ടറി ഇന്ന് സുപ്രീംകോടതിക്ക് കൈമാറും സോളിസിറ്റർ ജനറലുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരിക്കും ചീഫ് സെക്രട്ടറി ടോംജോസ് അന്തിമ റിപ്പോർട്ട് തയാറാക്കുക ഫ്ളാറ്റുകൾ പൊളിക്കാൻ നടപടി ക്രമങ്ങൾ ആരംഭിച്ചതായി റിപ്പോർട്ടിൽ വൃക്തമാക്കും നഗർസഭ ഇതുമായി ബന്ധപ്പെട്ട് ഇതു വരെ സ്വീകരിച്ച നടപടികളുടെ റിപ്പോർട്ട് ഇന്നലെ സംസ്ഥാന ഗവൺമെന്റിന് കൈമാറിയിരുന്നു പാലാ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം മൂന്നു മുന്നണികളും ഇന്ന് അവസാനിപ്പിക്കും നാളെ കൂടി പ്രചാരണം നടത്താമെങ്കിലും ശ്രീനാരായണ ഗുരു സമാധി പ്രമാണിച്ച് പരസ്യ പ്രചാരണം ഒഴിവാക്കാൻ മൂന്നു മുന്നണികളും തീരുമാനിക്കുകയാ യിരുന്നു

ഡി എഫ് സ്ഥാനാർത്ഥി ജോസ് ടോമിന്റെ പരസ്യപ്ര ചാരണ സമാപനം ഉച്ചകഴിഞ്ഞ് മൂന്നു മുതൽ ആറുവരെപാലാ ടൌൺ ഹാൾ മുതൽ ടൌൺ ബസ് സ്റ്റാൻഡ് വരെ നടക്കും രമേശ് ചെന്നിത്തല ഉമ്മൻ ചാണ്ടി ബന്നി ബഹനാൻ ജോസ് കെ മാണി തുടങ്ങിയ നേതാക്കൾ നേതൃത്വം നൽകും

എഫ് സ്ഥാനാർത്ഥി മാണി സി കാപ്പന്റെ പരസ്യപ്രചാര ണ സമാപനം ഉച്ചകഴിഞ്ഞ് നാലിന് പാലാ പഴയ സ്റ്റാൻഡിൽ നി ന്ന് ആരംഭിക്കും ആറിന് കാർമൽ ജംഗ്ഷനിൽ ചേരുന്ന പൊതു സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കൊടിയേരി ബാലകൃഷ്ണൻ പന്ന്യൻ രവീന്ദ്രൻ തുടങ്ങിയ നേതാ ക്കൾ പങ്കെടുക്കും

എ സ്ഥാനാർത്ഥി എൻ ഹരിയുടെ പരസ്യ പ്രചാരണ സമാ പനം ഉച്ചകഴിഞ്ഞ് രണ്ടിന് കടപ്പാട്ടൂർ ബൈപ്പാസിൽ നിന്ന് ആരംഭി ക്കും ആശുപത്രി ജംഗ്ഷനിൽ പ്രചാരണം അവസാനിക്കും

എ സ്ശ്രീധരൻപിള്ള വി മുരളീധരൻ ബി മുരളീധര റാവു തുടങ്ങിയ വർ നേതൃത്വം നൽകും പാലാരിവട്ടം മേൽപാലം അഴിമതികേസിൽ പൊതുമരാമത്ത് വകുപ്പ് മുൻ സെക്രട്ടറി ടി ഒ സൂരജിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുൻമന്ത്രി വി

എയെ വിജിലൻസ് വീണ്ടും ചോദ്യം ചെയ്യും മൂന്ന് ദിവസത്തിനകം ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകാനാണ് വിജില്ൻസിന്റെ തീരുമാനം വിജിലൻസ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം ഇന്നലെ യോഗം ചേർന്നു

ഒ സൂരജ് കോടതിയിൽ വെളിപ്പെടുത്തിയിരു ന്നു മാർ ് മ ജമ്മു കശ്മീരിന് പ്രത്യേക പദവി നൽകിയ ഭരണ ഘടനാ വൃവ സ്ഥകൾ എടുത്തുകളഞ്ഞതിലൂടെ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോവാത്ത ഗവൺമെന്റാണെന്ന് മോദി ഭരണകൂടം തെളി യിച്ചതായി കേന്ദ്ര സഹമന്ത്രി മൻസൂഖ് മാൻഡവ്യ തൃശൂരിൽ പറ ഞ്ഞു ജമ്മു കശ്മീരിന്റെ വികസനത്തിന് കോടികൾ നൽകിയിട്ടും കശ്മീർ മുഖ്യധാരയിൽ നിന്ന് അകന്ന് പോകുകയായിരുന്നുവെന്ന് ബി ജെ പി ജില്ലാ കമ്മിറ്രി സംഘടിപ്പിച്ച ചിന്താസായാഹ്നം ഉദ്ഘാ ടനം ചെയ്യവെ മന്ത്രി അഭിപ്രായപ്പെട്ടു

ജെ പി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ചിന്താ സായാഹ്നം ഇന്ന് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ബി

പുതിയ കശ്മീർ പുതിയ ഇന്ത്യ എന്ന വിഷയത്തിൽ സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള പ്രഭാഷണം നടത്തും കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല സ്ഥാപകൻ പി

വെങ്കയ്യനായിഡു ഉദ്ഘാടനം ചെയ്യും ഗവർണർ ആരിഫ് മുഹ മ്മദ് ഖാൻ ചടങ്ങിൽ അധ്യക്ഷനായിരിക്കും

എസ് വാര്യർ ഇട പെട്ട് പ്രവർത്തിച്ച എല്ലാ മേഖലകളെയും ഉൾപ്പെടുത്തിയായിരിക്കും ആഘോഷ പരിപാടികളെന്ന് സംഘാടക സമിതി അറിയിച്ചു കേന്ദ്ര ഷിപ്പിങ് കെമിക്കൽസ് ആന്റ് ഫെർട്ടിലൈസേഴ്സ് വകുപ്പ് സഹമന്ത്രി മൻസുഖ് മൻഡാവിയ ഉദ്യോഗ് മണ്ഡൽ ഫാക്ട് സന്ദർശിച്ചു ഫാക്ടിലെ സ്വഛ് ഭാരത് ശുചീകരണ പരിപാടിയിൽ പങ്കെടുത്ത മന്ത്രി ഫാക്ടറിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്ന തു സംബന്ധിച്ച് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി

വകുപ്പ് മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തുന്ന മൻസൂഖ്മൻഡാവിയ സ്വഛ് ഭാരത് സേവായജ്ഞത്തിലും സൈക്കിൾ റാലിയിലും പങ്കെടുക്കും ഇന്ത്യയുടെ ചന്ദ്രയാൻ രണ്ട് ദൌത്യത്തിന്റെ ബാഗമായ വിക്രം ലാൻഡറിന്റെ പ്രവർത്തന കാലാവധി ഇന്ന് അവസാനിക്കും ലാൻഡറുമായി ആശയവിനിമയം നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ശാസ്ത്ര ജ്ഞരുടെ വിദഗ്ധ സമിതി വിശകലമം നടത്തി വരികയാണ് അതി നിടെ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ ചുറ്റുന്ന മാതൃപേടകമായ ഓർബി റ്റിലെ ഉപകരണങ്ങൾ പൂർണ്ണമായി പ്രവർത്തന സജ്ജമാണ് ചന്ദ്ര നെപറ്റി കൂടുതൽ വിവരങ്ങൾ ഓർബിറ്ററിൽ നിന്നും ലഭിക്കുമെ ന്നാണ് പ്രതീക്ഷ ചെറുപ്രായത്തിൽ തന്നെ കായിക രംഗത്തെ മികച്ച കുട്ടികളെ കണ്ടെത്തി അവർക്ക് വിദഗ്ധ പരിശീലനം നൽകുന്നതിന് കായിക വകുപ്പ് പദ്ധതി ആരംഭിക്കും നവംബറിൽ ആദ്യ ഘട്ടമായി കാസർകോട് കണ്ണൂർ ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം ഇടുക്കി ജില്ലകളിൽ പദ്ധതി നടപ്പാക്കും ഇവർക്ക് വിദേശ് പരിശീലകർ ഉൾപ്പെടെ വിദഗ്ധരുടെ കോച്ചിങ് ലഭ്യമാക്കും

ദക്ഷിണ കൊറിയയാണ് ഇന്ത്യയെ തോൽപ്പിച്ചത് കസാഖിസ്ഥാനിൽ ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താര ങ്ങളായ ബജ്റങ് പുനിയയും രവി ദഹിയയും ഇന്ന് വെങ്കലമെഡ ലിനായി മത്സരിക്കും അടുത്ത വർഷത്തെ ടോക്യോ ഒളിമ്പിക്സിൽ ഇരുവരും യോഗൃത നേടിയിട്ടുണ്ട് അട്ടപ്പാടിയിലെ മുഴുവൻ ആദിവാസി ഊരുകളിലും ശേഷിക്കുന്ന നിരക്ഷരരെ കൂടി സാക്ഷരതയിലേക്ക് കൊണ്ടുവരാൻ അട്ടപ്പാടി സമ്പൂർണ സാക്ഷരതാ പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചു

തദ്ദേശ സ്ഥാപനങ്ങളുടെയും വകുപ്പുകളുടെയും സഹകരണത്തോടെ ആയിരിക്കും സാക്ഷരതാ മിഷൻ പദ്ധതി നടപ്പാക്കുന്നത്

കഴിഞ്ഞ ജൂണിൽ ലഭിച്ച അപ്പീ ലുകൾ പരിശോധിച്ച് തെരഞ്ഞെടുത്ത ഗുണഭോക്താക്കൾക്കാണ് ഈ തുക വിതരണം ചെയ്യുക സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി യിൽ നിന്നുമാണ് തുക അനുവദിച്ചത് കഴിഞ്ഞ വർഷത്തെ മികച്ച ഗ്രാമപഞ്ചായത്തിന് നൽകുന്ന ദീൻ ദ യാൽ ഉപാധ്യായ പഞ്ചായത്ത് സശാക്തീകരൺ പുരസ്കാരം കൊ ല്ലം ജില്ലയിലെ ശൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചു

വിവിധ വികസ ന മേഖലയിൽ നടത്തിയ മാതൃകാപ്രവർത്തനങ്ങളും കൂടുംബശ്രീ തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തനങ്ങളുമാണ് പഞ്ചായത്തിനെ അവാർഡിന് അർഹമാക്കിയത്

സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം നടത്തുമെന്ന് തൃശൂർറേഞ്ച് ഐ

നിലമ്പൂർ നാടുകാണി ചൂരം വഴി വലിയ വാഹനങ്ങൾ കടത്തിവി ടാവുന്ന സാഹചരൃം ഇപ്പോഴില്ലെന്ന് പൊതുമരാമത്ത് വകുപ്പ് വില യിരുത്തി റോഡിലെ വലിയ കുഴികളും നിലംപതിക്കാവുന്നവിധം വശ ങ്ങ ളിൽ മരങ്ങളും പാറകളും ശേഷിക്കു ന്നതും മുൻനിർത്തിയാണ് വലിയ വാഹനങ്ങൾക്ക് അനുമതി നിഷേധിച്ച ത് ചെറുവാഹനങ്ങൾക്ക് കടന്നു പോകാൻ അനുവാദം നൽകിയി ട്ടുണ്ട് കോതമംഗലം മാർത്തോമൻ ചെറിയ പള്ളിയിൽ യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഓർത്തഡോക്സ് സഭ വികാരി തോമസ്പോൾ റമ്പാന് പരിക്കേറ്റു അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതിനു പുറമെ പൊലിസുകാർ ഉൾപ്പെടെ ഓർത്തഡോക്സ് വിഭാഗത്തിലെ ഒമ്പത് വൈദികർക്കും പരിക്കുപറ്റി എൽദോ മാർ ബസേലിയാസ് ബാവ യുടെ ഖബറിടം യാക്കോബായ വിഭാഗം തികർത്തുവെന്ന ആരോപണത്തെ തുടർന്നാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പ്രവർത്തന മികവിന് കോഴി ക്കോട് ജില്ലാ സഹകരണ ബാങ്ക് ബാങ്കിങ്ങ് ഫ്രോണ്ടിയർ ദേശീയ അവാർഡ് നേടി പ്രളയം മൊറട്ടോറിയം നിപാ പ്രതികൂല സാഹ ചര്യങ്ങളിലും നിഷ്ക്രിയ ആസ്തി കുറയ്ക്കൽ ലക്ഷ്യം കണ്ടത് പരി ഗണിച്ചാണ് പുരസ്കാരം ഗോവയിൽ ഇന്നലെ സമാപിച്ച സഹക രണ ബാങ്കിങ് ദേശീയകൺവെൻഷനിൽ പുരസ്കാരം സമ്മാനി നും വയനാട് സുൽത്താൻ ബത്തേരി സർവീസ് സഹകരണ ബാങ്ക് ഭരണ സമിതി വീണ്ടും ബി ജെ

ജെ പി നേതൃത്വം നൽകിയ സഹകരണ മുന്നണി വിജയിച്ചു ഇടുക്കി ജില്ലയിലെ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കാൻ കർ മോത്സവ് രണ്ടാംഘട്ട പദ്ധതിക്ക് തുടക്കമായി